ആദ്യ മത്സരം അല്പസമയത്തിനകം ഗുവഹാത്തിയിൽ ആരംഭിക്കും

വിശദ വിവരങ്ങളുമായി ലിൻസ

ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രമുഖ വൃക്തി ലാ്ൽതി റാം നേതാജി സുബാഷ് ചന്ദ്രബോസിന്റെ അനന്തിരിവ്യൻ ചന്ദ്രകുമാർ ബോസ് സാംസ്കാരിക വകുപ്പ് മൃത്തി മഹേഷ് ശർമ്മ മറ്റുപ്രമുഖ വ്യക്തികൾ എന്നിവരും ച്ച്ടങ്ങിൽ സന്നിഹിതരായിരുന്നു ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്നത് വെറും ഒരു നാമമല്ലെന്നും നേതാജി സുബാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും ഉള്ള പദ്ധതികൾ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ ഗവൺമെന്റിന് സ്വന്തമായി ബാങ്ക് കറൻസി പോസ്റ്റൽ സ്റ്റാമ്പ് ഇന്റലിജൻസ് സംവിധാനം എന്നിവയും ഉണ്ടായിരുന്നു

സ്വാതന്ത്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീർന്ന ഈ ഗവൺമെന്റ് ഇന്ത്യയെ സ്വതന്ത്രയാക്കാൻവേണ്ടി രാജ്യത്തിന് പുറത്ത് നിന്നും ഒട്ടേറെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി

സ്വാതന്ത്ര്യ സമര കാലഘട്ടംമുതൽ രാഷ്ട്രത്തിനുവേണ്ടി ജീവൻ തൃജിച്ച പോലീസുകാരുടെ സ്മരണയ്ക്കായാണ് പോലീസ് സ്മൃതി മന്ദിരം സ്ഥാപിച്ചത്

ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുതിർന്ന നേതാവ് എൽ

അദാനി കേന്ദ്രസഹമന്ത്രിമാരായ കിരൺ റിജിജു ഹൻസ് രാജ് അഹിർ ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബക്ടുക്കേന്ദ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ തലവൻമാർ തുടങ്ങിയിവർ പ്പടങ്ങിൽ സംബന്ധിച്ചു ഈ വർഷം ഔദ്യോഗിക പ്രൂ കൃത്യ നിർവ്വഹണത്തിനിടെ വീരമൃത്യുവരിച്ച പോലീസ്റ് സേനാംഗങ്ങളുടെ പേരുകൾ ഇന്റലിജൻസ് മേധാവി രാജീവ് ജെയിൻ ചടങ്ങിൽ വായിച്ചു രാജ്യത്തിനെതിരെ ഗൂഢ്ട്ട്ലോചന നടത്തുകയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുനേരെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ പോലീസിന്റെ ജാഗ്രതമൂലം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീരിൽ ക്രമസമാധാനം പുലർത്തുവാനും ഭീകരപ്രവർത്തനങ്ങൾ അമർച്ചചെയ്യുവാനും പ്രവർത്തിക്കുന്ന സേനാംഗങ്ങളെയും ജോലിചെയ്യുന്ന സേനാംഗങ്ങളെയും സ്മരിക്കാനുള്ള ദിനമാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൊല്ലപ്പെട്ട ഭീകരർ ഏത് സംഘടനയിൽ ഉള്ളവരാണെന്ന് സേന പരിശോധിച്ചുവരുന്നതായും വക്താവ് പറഞ്ഞു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

ശ്രീലങ്ക വഴി സൌദി അറേബൃയിലേക്ക് രക്ഷപ്പെടാൻ ്യശ്രമിക്ക്ുന്നതിനിടെ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാന്നത്താവളത്തിൽ വച്ചാണ് മുഹമ്മദ് അഷറഫ് ഖൻഡേ എന്നയാള്ള എൻ ഐ എയുടെ പ്രത്യേക സംഘം പിടികൂടിയത്

ബ്രെക്സിറ്റ് വിഷയത്തിൽ പുതുതായി വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില പാർലമെന്റ് അംഗങ്ങളും പ്രതിഷേധത്തെ പിൻതുണയ്ക്കുന്നുണ്ട്

ബ്രെക്സിറ്റ് വിഷയത്തിൽ ഇനിയൊരു വോട്ടെടുപ്പ് അനുവദിക്കില്ലെന്നാണ് പ്രധാനമന്ത്രി തെരേസാ മേയുടെ നിലപാട്

റഷ്യയും ചൈനയും പുതിയ കരാറിലേർപ്പെടാൻ തയ്യാറാകാത്തപക്ഷം സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം നേവാഡയിൽ മാധ്യമ പ്രവർത്തകരോടു പറഞ്ഞു

അതേ സമയം സുപ്രധാന ആയുധ കരാ റിൽ നിന്നും പിൻമാറാനുള്ള യു

നടപടി ഒരേയൊരു ആഗോള മഹാശക്തിയെന്ന അമേരിക്കയുടെ സ്വപ്നങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണെന്ന് റഷ്യ പ്രതികരിച്ചു

ഭീകരവാദം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കാലാവസ്ഥാ വൃതി യാനം എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗോള സഹകരണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രബ്സിൽസിൽ ഇന്ത്യൻ സമൂ ഹത്തെയും അദ്ദേഹം അഭിസംബോധിന് ഉചയ്തിരുന്നു

ജെ

ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ബി ജെ

കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗമാണ സ്ഥാനാർത്ഥികളുടെ പട്ടിക നൽകിയത്

സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേര് ബി ജെ

ജെ

സിയാങ് നദിയിൽ ജലനിർപ്പ് ഉയർന്നതാണ് പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന് കാരണം സ്കൂർ അതേസമയം ബ്രഹ്മപുത്രയിൽ നിലവിൽ ജലനിരപ്പ് ഉയരാത്തിതിനാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃത്ർ അറിയിച്ചു അടിയന്തിര സാഹചര്യം നേരിടാൻ അപ്പർ ആസ്ട്മിലെ ചില സ്ഥലങ്ങളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്

അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത് ഏകദിന പരമ്പരയ്ക്ക്ശേഷം അടുത്തമാസം മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളും നടക്കും

ഇന്നലെ നടന്ന പുരുഷവിഭാഗം മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ഒന്നിനെതിരെ മൂന്നു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഒമാനെ പരാജയപ്പെടുത്തിയിരുന്നു ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും

ഇന്നലെ നടന്ന സെമിയിൽ ്ലൂസെന ഇൻഡോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ഷ്രാജ്യപ്പെടുത്തിയാണ് ഫൈന ലിൽ കടന്നത് ഡെൻമാർക്ക് ഓപ്പ്ബിൽ ഇത് രണ്ടാം തവണയാണ് സൈന പങ്കെടുക്കുന്നത്